കടന്നു

നാലായിരം പേർ രോഗ്ർമുക്തി നേടിയതായി കേന്ദ്രസർക്കാർ

ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം തുടങ്ങി കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷപ്രതിഷേധം

ഇതുവരെ മൂന്നു ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി അറിയിച്ചു

എൽ

എൽ

വിശദാംശങ്ങളുമായി ആമിന നജുമ

പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് രോഗമുക്തി നിരക്ക് ഉയർത്താൻ സാധിച്ചു

മറ്റ് രാജ്യങ്ങളിലെ മരണനിരക്ക് കണക്കിള്ളിട്ടുത്താൽ ഇന്ത്യയിലേത് കുറവാണെന്നും കേന്ദ്ര സംസ്ഥാന്ട് സ്ർക്കാരുകളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ്ടിരുന്നും ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഈ സ്റ്റേഷനുകളിൽ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളെത്തിച്ചേരാനുള്ള സൌകര്യമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു

കോവിഡ് മഹാമാരിക്കെതിരായ പ്രതിരോധപ്രവർത്തനങ്ങൾക്ക് റെയിൽവെയുടെ പൂർണപിന്തുണയുണ്ടാകുമെന്നും ഉത്തരമേഖല റെയിൽവേ ജനറൽ മാനേജർ രാജീവ് ചൌധരി അറിയിച്ചു

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാംസ്ഥാനത്താണ് ഇന്ത്യ

മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിനിന്ന് ശ്രീ പിണറായി വിജയൻ അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം

എൽ

നാളെ വൈകിട്ട് വരെ സച്ചിൻപൈലറ്റിനും കൂടെയുള്ള എംഎൽഎമാർക്കുമെതിരെ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി നേരത്തെ നിർദേശിച്ചിരുന്നു

നികുതിദായകർക്ക് ഓൺലൈനായി റിട്ടേണുകൾ സമർപ്പിക്കാനാകും

ദക്ഷിണ മധ്യ കിഴക്കൻ മേഖലകളിലാണ് മഴ കൂടുതൽ ലഭിച്ചത്

വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അടുത്ത മൂന്നു ദിവസം ഭേദപ്പെട്ട മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

അറബ് രാജ്യങ്ങൾക്കിടയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ ദൌത്യമാണ്ടിത്

പിത്താശയ സംബന്ധമായ പരിശോധനയ്ക്കായാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

ബിഹാർ അസം അന്ധ്രാ പ്രദേശ് തെലങ്കാന തെലങ്കാന തമിഴ്നാട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ്എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്

ലോകത്ത് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാക്കളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം സ്ഥാനത്ത്